ബീച്ചുകൾ നവംബർ ഒന്നുമുതൽ തുറന്നു കൊടുക്കും

ഔദ്യോഗിക പ്രഖ്യാപനം രാവിലെ തിരുവന്തപുരത്ത്

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനും രാജസ്ഥാൻ റോയൽസിനും വിജയം

ടി ജലീലും രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ഇന്ന് സംസ്ഥാന വ്യാപകമായി സത്യഗ്രഹം നടത്തും

സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നത് എന്നാൽ ബീച്ചുകൾ നവംബർ ഒന്നിനേ തുറക്കൂ ഹിൽസ്റ്റേഷനുകളും സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കായലോര ടൂറിസം കേന്ദ്രങ്ങളും തുറക്കാനാണ് തീരുമാനം കൊവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമായിരിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നത് കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ ആറ് മാസം ടൂറിസം മേഖലയും അതിനെ ആശ്രയിച്ചു ജീവിക്കുന്നവരും വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് തുറക്കൽ തീരുമാനമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരാഴ്ച്ച വരെ ഹ്രസ്വ സന്ദർശനത്തിന് ക്വാറന്റീൻ നിർബന്ധമില്ല എന്നാൽ അവർ കൊവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഏഴ് ദിവസം കഴിഞ്ഞും മടങ്ങുന്നില്ലെങ്കിൽ ടൂറിസ്റ്റുകൾ സ്വന്തം ചെലവിൽ കൊവിഡ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് രുര സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് മുക്തരുടെ എണ്ണത്തിൽ വൻ വർദ്ധന രേഖപ്പെടുത്തി

രുമ കൊല്ലം നെടുങ്ങോലം രാമറാവു താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണികൾക്കായി കോവിഡ് സെക്കന്റ് ലൈൻ ചികിത്സാ കേന്ദ്രം പ്രവർത്തനസജ്ജമായി കോവിഡ് സ്ഥിരീകരിക്കുകയോ സമാന രോഗലക്ഷണങ്ങൾ കാണുകയോ ചെയ്താൽ നെടുങ്ങോലത്തെ ആശുപത്രിയിൽ ചികിത്സ തേടാം

രും കോവിഡ് പോസിറ്റീവാകുന്ന ഗർഭിണികൾക്ക് സ്വകാര്യ ആശുപത്രികൾ തുടർ ചികിത്സ നിഷേധിക്കരുതെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളെ കൊവിഡ് പോസിറ്റീവ് ആയാൽ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്ന പ്രവണത വർധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഉത്തരവ് രും കൊല്ലം തങ്കശ്ശേരി ഫിഷിങ് ഹാർബറും അനുബന്ധ ലേലഹാളുകളും താൽക്കാലികമായി തുറന്നു

കോഴിക്കോട് ജില്ലയിലെ ഹാർബറുകളും ഫിഷ് ലാന്റിംഗ് സെന്ററുകളും കർശന നിയന്ത്രണങ്ങളോടെ തുറക്കാൻ കലക്ടർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ പ്രദേശങ്ങൾ നിയന്ത്രിത മേഖലയായി തുടരും

സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാന പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരിക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി ഡോ തോമസ് ഐസക് തുടങ്ങിയവരും പങ്കെടുക്കും രും രീതിയിൽ അതിജീവിക്കാവുന്ന പ്രളയത്തെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പുനർ നിർമ്മാണം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ കൈതവനയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രി ജി

ചരക്ക് സേവന നികുതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ തർക്ക പരിഹാരം കണ്ടെത്താനാണ് യോഗം ചേരുന്നത്

രും കേന്ദ്ര ഗവൺമെന്റ് ശുപാർശ ചെയ്ത എട്ട് ബീച്ചുകൾക്കും രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് അഭിമാനകരമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അഭിപ്രായപ്പെട്ടു ഒരു രാജ്യത്തിനും ഇതുവരെ ഒറ്റയടിക്ക് ഇത്രയേറെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

പാരീസിൽ ഇന്നലെ നൊവാക് ജോക്കോവിച്ചിനെ കലാശപ്പോരാട്ടത്തിൽ ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്കാണ് നദാൽ കീഴടക്കിയത്

ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ഷാർജയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും രും അട്ടപ്പാടിയിലെ ഗതാഗത യോഗ്യമാക്കിയ മുക്കാലി ചിണ്ടക്കി റോഡ് ഇന്ന് മന്ത്രി എ

മുക്കാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതൽ ചിണ്ടക്കി വരെ രണ്ടര കിലോമീറ്റർ റോഡാണ് നന്നാക്കിയത്

കെ ശൈലജ തറക്കല്ലിടും

രുര പാലക്കാട് നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കാഷ്വാലിറ്റി കെട്ടിടം നവീകരിച്ച ലേബർ വാർഡ് എന്നിവ രാവിലെ മന്ത്രി കെ

ശൈലജ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ദര നിർമാണം പൂർത്തീകരിച്ച തൃശൂർ വടക്കേ ബസ്സ്റ്റാൻഡ് ഇന്ന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും

ദര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രി കെ

അസത്യങ്ങളുടെ മൂടുപടം കൊണ്ട് സത്യത്തെ മറയ്ക്കാനും രക്ഷപ്പെടാനും മുഖ്യമന്ത്രിയ്ക്ക് കഴിയില്ലെന്ന് മുല്ലപള്ളി തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു